വൈകിട്ട് ഭാരതീയ വിചാരകേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാവും

കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നെയ്വേലിയിലെ ആയിരം മെഗാവാട്ട് തെർമൽ ഊർജ്ജ പദ്ധതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും

രാവിലെ പതിന്നൊന്നരയോടെ പുതുച്ചേരിയി ലെത്തുന്ന പ്രധാനമന്ത്രി വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ

ലോവർ ഭവാനി പദ്ധതിയുടെ വിപുലീകരണത്തിനും ആധുനിക വൽക്കരണത്തിനും നവീകരണത്തിനും നരേന്ദ്രമോദി തറക്കല്ലിടും എട്ടുവരിയിൽ പൂർത്തിയാക്കിയ കോരംപള്ളം പാലവും വി ഒ ചിദംബരനാർ തുറമുഖത്തെ റെയിൽവെ മേൽപ്പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

തീരദേശ ഹൈവേ നിർമാണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ട്രാക്കുകൾ പരിഗണനയിലാണെന്ന് അദ്ദേഹം അറിയിച്ചു മാധ്യമപ്രവർത്തകരുമായി തിരുവനന്തപുരത്ത് ചാറ്റ് വിത്ത് സി എം പരിപാടിയിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം ഉന്നതവിദ്യാഭ്യാസരംഗത്ത് പല പുതിയ കോഴ്സുകളും വരുന്നുണ്ടെന്നും പല ഉന്നതവിദ്യാഭ്യാസസ്ഥാപനങ്ങളും മികവിന്റെ കേന്ദ്രമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും കോവിഡ് സാഹചര്യത്തിൽ അത് പ്രാവർത്തികമായില്ലെന്നും അദ്ദേഹം അറിയിച്ചു രുര സ്വതന്ത്രവും നീതിപൂർവ്വകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു

തെരഞ്ഞെുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊവിഡ് വാക്സിൻ നിർബന്ധമാക്കുമെന്നും ടിക്കറാം മീണ പറഞ്ഞു രും അഴിമതിയിലും സ്വജന പക്ഷപാതത്തിലും മുൻ ഗവൺമെന്റിനോട് മത്സരിക്കുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി കണ്ട് സഹികെട്ടാണ് ജനങ്ങൾ മുൻ ഗവൺമെന്റിനെ താഴെ ഇറക്കിയതെന്നും അതിനെ വെല്ലുന്ന അഴിമതിയാണ് ഇടത് ഗവൺമെന്റ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രക്ക് കോഴിക്കോട് എലത്തൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ രുര കേരളത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്ന കമ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമാണെന് ബി

ജെ പി ശക്തി തെളിയിക്കാൻ വേണ്ടി മാത്രമല്ല ജയിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി കൂടിയാണ് മത്സരിക്കുന്നതെന്നും രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി

വികസന മാതൃകയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ പിന്തുടരാൻ കേരളം തയ്യാറാവണമെന് കെ സുരേന്ദ്രൻ പറഞ്ഞു സമാപന യോഗത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് വി

സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശ് ആമുഖ ഭാഷണം നടത്തി രുഭ വിവാദമായ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സത്യഗ്രഹം നടത്തും പൂന്തുറയിൽ രാവിലെ ഒമ്പതിന് ആരംഭിക്കുന്ന സത്യഗ്രഹം കെ പി പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രും ആലപ്പുഴ വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചു നാഗംകുളങ്ങര കവലയിൽ ഇന്നലെ രാത്രി എട്ടുമണിയോടെ ആർഎസ്എസ് എസ് ഡി പി ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകൻ തട്ടാപറമ്പ് നന്ദുകൃഷ്ണ കൊല്ലപ്പെട്ടത് മൂന്ന് വീതം ആർ എസ് എസ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു സ്ഥലത്ത് പൊലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സംഭവത്തെ തുടർന്ന് ബിജെപി ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ

പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗികൾ

രും അഹമ്മദാബാദിൽ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് മേൽക്കെ

രുര ഐഎസ്എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ് സി പ്ലേഓഫ് ഉറപ്പാക്കി ഗോവയിൽ നടന്ന മത്സരത്തിൽ ലീഗിലെ അവസാന സ്ഥാനക്കാരായ ഒഡീഷ എഫ് സി യെ ഒന്നിനെതിരെ ആറു ഗോളുകൾക്ക് തോൽപിച്ചാണ് മുംബൈ പ്ലേഓഫ് ഉറപ്പിച്ചത് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മുംബൈ

സി യെ നേരിടും

ഇന്നലെ രാത്രി എട്ടോടെയാണ് തന്ത്രി ചേന്നാസ് ഹരി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിച്ചത്

അടുത്തമാസം അഞ്ചിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാവും രും ഇടുക്കി ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇടുക്കി പാക്കേജ് പ്രഖ്യാപനം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കട്ടപ്പനയിൽ ചേരുന്ന സമ്മേളനത്തിൽ മന്ത്രി തോമസ് ഐസക്ക് അധ്യക്ഷനായിരിക്കും

മികച്ച സർവകലാശാലയ്ക്ക് നൽകുന്ന അവാർഡിന് കേരള സർവകലാശാലയും മികച്ച ഡയറക്ടറേറ്റിന് നൽകുന്ന അവാർഡിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലെ ഹയർസെക്കന്ററി വിഭാഗവും അർഹരായി മികച്ച യൂണിറ്റുകൾക്ക് നൽകുന്ന അവാർഡുകളും മന്ത്രി പ്രഖ്യാപിച്ചു രുര വ്യാവസായിക പരിശീലന രംഗത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായി സംസ്ഥാനത്തെ ഗവൺമെന്റ് ഐടിഐകളെ മാറ്റുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പഠനത്തോടൊപ്പം വരുമാനത്തിനും വഴിയൊരുക്കുന്നതിന് ലക്ഷ്യമിട്ട് ആരംഭിച്ച ഉൽപാദന കേന്ദ്രങ്ങൾ എല്ലാ ഐടിഐ കളിലേക്കും വ്യാപിപ്പിക്കും ഏത് തൊഴിൽ മേഖലയിലും ഉയർന്നുവരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിവും നൈപുണ്യവും യുവതലമുറയ്ക്ക് ഉറപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു

രംഭ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ ജനകീയ വിദ്യാഭ്യാസ ബോധവൽക്കരണത്തിലൂടെ രാജ്യത്തിന് മാതൃക സൃഷ്ടിക്കാൻ സംസ്ഥാനത്തിനു സാധിച്ചതായി മന്ത്രി എ

വലിച്ചെറിയാനുളളതല്ലെന്നും അതു മൂല്യമുള്ളതാണെന്ന ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും മന്ത്രി അഭിപ്രായപ്പെട്ടു

രും ഈ ഗവൺമെന്റിന്റെ കാലത്ത് വനംവകുപ്പിന് കീഴിൽ അഭിമാനകരമായ പദ്ധതികളാണ് പൂർത്തീകരിച്ചതെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു ഇടുക്കിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച മണത്തളം സ്റ്റാഫ് ബാരക്കിന്റെയും പേത്തൊട്ടി ഡോർമിറ്ററിയുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ച് സംസാരിക്കുക യായിരുന്നു മന്ത്രി

ഗവൺമെന്റിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷനു കീഴിൽ പുതുതായി ആരംഭിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീം ഓഫീസിന്റെയും മുക്കുഴി മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രും വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയുന്നതിനായി വയനാട്ടിൽ നിർമിച്ച സംസ്ഥാനത്തെ ആദ്യ റെയിൽ ഫെൻസിംഗ് മന്ത്രി കെ രാജു നാടിന് സമർപ്പിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യമൃഗങ്ങൾ ഭീഷണിയാണെന്ന് പൊതുജനങ്ങളുടെ ദീർഘകാല പരാതിക്ക് പരിഹാരമായാണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചത് രുര വയനാട് ജില്ലയിൽ വനാതിർത്തിയിൽ താമസിക്കുന്നവർക്കും വനത്തിലെ ജീവനക്കാർക്കും കുരങ്ങു പനിക്കെതിരെ വാക്സിൻ നൽകാൻ ജില്ലാ കലക്ടർ ഡോ